ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അരലക്ഷം പിന്നിട്ടു

തോമസ് ഐസക് ത ഇന്ന് ലോക വിനോദ സഞ്ചാര ദിനം ലോക നദീ ദിനവും ഇന്ന് ആചരിക്കുന്നു

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത ഏഴു വിക്കറ്റിന് ഹൈദരാബാദിനെ തോൽപ്പിച്ചു

എന്നിന്റെ സ്ഥിരാംഗത്വത്തിൽ നിന്ന് എത്രകാലം ഇന്ത്യയെ മാറ്റി നിർത്താനാകുമെന്ന് ചോദിച്ചു

നേരത്തെ റെക്കോർഡ് ചെയ്ത മോദിയുടെ വീഡിയോ സന്ദേശമാണ് പ്രക്ഷേപണം ചെയ്തത്

ആഗോള സ്ഥിതി പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ തുടങ്ങി എല്ലാം തീർത്തും വിഭിന്നമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ വർഷങ്ങളായി ലഭിച്ച പരിചയം ലോകത്തിന്റെ നേട്ടത്തിനായി ഉപയോഗിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻകീ ബാത് ഇന്ന്

ദൂരദർശനും മൻകീ ബാത് സംപ്രേഷണം ചെയ്യും

പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രസംഗം കഴിഞ്ഞാലുടൻ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണി കേരള നിലയങ്ങളിൽ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുന പ്രക്ഷേപണം ഉണ്ടാവും

ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അര ലക്ഷം പിന്നിട്ടു

കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി രുമ കോവിഡ് പരിശോധന വർധിക്കുന്നതനുസരിച്ച് സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണവും ആശങ്കയുയർത്തി കൂടുകയാണ്

രോഗവ്യാപനം അതിരൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി കോവിഡ്ബാധിതരുടെ എണ്ണം ആയിരം കടന്നു

സുധാകരൻ എം

ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലുണ്ടായിരുന്നവർ നിരീക്ഷണത്തിൽ പോകണമെന്ന് എം

രുര തിരുവനന്തപുരം കലക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന പ്രചാരണം അടിസ്ഥാന രഹിതമാണെന്ന് ജില്ലാ കലക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെ തെർമൽ സ്കാനിങ് നടത്തിയ ശേഷം പ്രവേശിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു രുദ മഹാരാഷ്ട്രയിൽ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ആരംഭിച്ചതായി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ആശങ്ക പ്രകടിപ്പിച്ചു ജോലിക്കായി ജനങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയതോടെയാണിതെന്നും നിബന്ധനകൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മറാത്ത് വാഡ നാഷിക് ഡിവിഷൻ എന്നിവിടങ്ങളിലെ കോവിഡ് സ്ഥിതി സംബന്ധിച്ച് മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും ഓൺലൈൻ വഴി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ലോകത്തെ കോവിഡ് മരണം പത്ത് ലക്ഷത്തോടടുത്തു

രമേ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ കാർഷിക ബില്ലുകളിൽ പ്രതിഷേധിച്ച് ശിരോമണി അകാലിദൾ എൻ

പാർട്ടി കോർ കമ്മിറ്റിയുടെ അടിയന്തര യോഗമാണ് മുന്നണി വിടാൻ ഏകകണ്ഠമായി തീരുമാനിച്ചതെന്ന് പാർട്ടി അധ്യക്ഷൻ സുഖ്ബീർ സിങ് ബാദൽ ഛണ്ഡീഗഢിൽ അറിയിച്ചു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകി സംഭരിക്കുന്നത് നിയമനിർമ്മാണം വഴി ഉറപ്പു വരുത്തണമെന്ന ആവശ്യം കേന്ദ്രം നിരാകരിച്ചതാണ് മുന്നണി വിടാൻ കാരണമെന്നും അദ്ദേഹം അറിയിച്ചു രുമ സംസ്ഥാനത്തിന്റെ പശ്ചാത്തല വികസനത്തിന് രണ്ട് ലക്ഷം കോടി രൂപയുടെ പൊതുനിക്ഷേപത്തിന് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഡോ

ഇതിനായി കിഫ്ബി പോലെ പുതിയ മാതൃകകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു

കോവിഡ് മഹാമാരി വിനോദ സഞ്ചാര മേഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചെങ്കിലും സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സുസ്ഥിര വികസനത്തോടെ ടൂറിസത്തിന്റെ ഭാവി വികസനം സാധ്യമാക്കാനാണ് ലോക ടൂറിസം ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്നത് രേര വിനോദ സഞ്ചാരത്തിലൂടെ പ്രാദേശിക വികസനം എന്ന ആശയം ആഗോള തലത്തിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ കേരളം ഈ രംഗത്ത് ഏറെ മുന്നിലാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ വിനോദ സഞ്ചാര നയം ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഊന്നിയതാണ്

രേര ഇന്ന് ലോക നദീ ദിനം

ചെങ്ങന്നൂരിൽ ഉത്തരപള്ളിയാറിന്റെ പുനരുജ്ജീവനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് മിസോറാം ഗവർണർ പി

ഉത്തരപള്ളിയാറിന്റെ പുനരുജ്ജീവനത്തിനും സംരക്ഷണത്തിനും നേതൃത്വം നൽകുന്ന പ്രദേശവാസികൾക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുന്നതായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏഴു വിക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു

ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഷാർജയിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും രുമ ലൈഫ് മിഷൻ പദ്ധതിയിൽ സി

ഐ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതം ആണെന്ന് സിപിഐഎം ആരോപിക്കുന്നത് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ധാർമികതയുണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കാതെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

രുമ എറണാകുളം ജില്ലയിലെ റേഷൻ കടകളിൽ ബാക്കി വന്ന സൌജന്യ ഓണക്കിറ്റുകൾ തിരിച്ചെടുത്ത് പകരം കിറ്റുകൾ വിതരണം ആരംഭിച്ചതായി സപ്പൈകോ മാർക്കറ്റിങ് മാനേജർ അറിയിച്ചു ഓണക്കാലത്ത് വിതരണം ചെയ്ത ഭക്ഷ്യധാന്യ കിറ്റുകളിൽ ബാക്കിയുള്ളവ റേഷൻ കടകളിൽ കെട്ടിക്കിടന്ന് നശിക്കുകയാണെന്ന വാർത്ത അടിസ്ഥാന രഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു രുദ ഭൂമി തരം മാറ്റാം എന്ന പേരിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി ശ്രദ്ധയിൽപെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ പൊലീസിനോട് ആവശ്യപ്പെട്ടതായും എറണാകുളം ജില്ലാ കലക്ടർ എസ്

എം റോയ് അർഹനായി മറ്റന്നാൾ വൈകീട്ട് അവാർഡ് സമ്മാനിക്കും ദേദ പ്പസ് വൺ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നാളെ ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കും തെറ്റായ വിവരങ്ങൾ നൽകിയത് കാരണം അലോട്ട്മെന്റിന് പരിഗണിക്കാത്തവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷ സമർപ്പിക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു രുമ മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ വെള്ളിയാഴ്ച ഒഴുക്കിൽപെട്ട് കാണാതായ പിതാവിന്റെയും മകന്റെയും മൃതദേഹം കണ്ടെത്തി കക്കാട് ബാക്കിക്കയം സ്വദേശികളായ ഇസ്മയിൽ മകൻ മുഹമ്മദ് ശംവീൽ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് രുമ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ സർവ്വകലാശാല പരീക്ഷാ നടത്തിപ്പിന് ഏകോപന സമിതി രൂപീകരിച്ചു നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ മറ്റന്നാൾ ആരംഭിക്കും